പ്രദീപ് സിംഗിക്ട് ്ങ്നാം റാങ്ക്

സി എൽ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള അമേരിക്കയിൽ ഒന്നര ലക്ഷത്തിലധികം പേർ മരിച്ചു

പ്രദീപ് സിംഗിനാണ് ഒന്നാം റാങ്ക്

പരീക്ഷ ഫലം യു

എസ്

സമൂഹത്തിലെ പാവപ്പെട്ടവർക്കും താഴെക്കിടയിലുള്ളവർക്കും വേണ്ടി പ്രവർത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ പ്രദീപ് സിംഗ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു

പൊതു സേവനത്തിനായുള്ള സംതൃപ്തവും ആവേശഭരിതവുമായ അവസരമാണ് വിജയികളെ കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വിജയികൾക്ക് എല്ലാ നന്മകളൂ്ള നേരുന്നതായും പ്രധാനമന്ത്രി അറിയിച്ചു

മതനേത്പൂക്കളും അയോധ്യയിൽ നിന്നുള്ള പൌര പ്രമുഖരും പ്രധാനമന്ത്രീക്കൊപ്പം ചടങ്ങിൽ പങ്കെടുക്കും കോവിഡ് പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിലാണ് ചടങ്ങുകൾ നടക്കുക ഭൂമി പൂജയുമായി ബന്ധപ്പെട്ട് മൂന്നു ദിവസം നീണ്ടുനിൽക്കുന്ന ചടങ്ങുകളാണ് നടക്കുന്നത് കീർത്തന പാരായണവും ദീപങ്ങൾ തെളിയിച്ചുള്ള ചടങ്ങും രണ്ടാം ദിനമായ ഇന്ന് നടക്കുന്നു

വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ രാജൃത്തിന്റെ വളർച്ചയുടെ കേന്ദ്രബിന്ദു ആകണമെന്നാണ് പ്രധാനമന്ത്രി വിഭാവനം ചെയ്യുന്നതെന്നും ഈ പ്രദേശം വിഭവങ്ങളാലും വൈവിധൃത്താലും സമ്പന്നമാണെന്നും ചടങ്ങിനെ അഭിസംബോധന ചെയ്യവെ അദ്ദേഹം പാല്ലഞ്ഞു

നിയമ വിദ്യാർത്ഥികൾ അവരുടെ നിയമ പരിജ്ഞാനം താഴെത്തട്ടിലുള്ളവരെ ശാക്തീകരിക്കാൻ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു

ഗ്രാമീണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സർക്കാർ പ്രത്യേക ഊന്നലാണ് നൽകുന്നത് ദാരിദ്ര്യം കുറച്ച് ഗ്രാമങ്ങളെ സ്വയംപര്യാപ്തമാക്കുകയാണ് ലക്ഷ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈ എടുത്ത് നടപ്പാക്കിയ ഗ്രാമീണ ആവാസ് യോജന ഗ്രാമീണ മേഖലയിലെ ഓരോ കുടുംബത്തിനും പാർപ്പിടം ഉറപ്പാക്കുന്നതും ലക്ഷ്യമിടുന്നു

ലോകം നേരിടുന്ന വിവിധ വെല്ലുവിളികളെകുറിച്ച് ചർച്ച ചെയ്തതായും ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ ഇന്ത്യയും അയർലൻഡും യോജിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായും ശ്രീ

ബി

കേസിൽ മഹാരാഷ്ട്ര സർക്കാർ ബിഹാർ പ്പോലീസുമായി സഹകരിക്കുന്നില്ലെന്ന് മുഖ്യമ്പ്രി നിതീഷ് കുമാർ ആരോപിച്ചു

ലഡാക്കിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ജമ്മുകശ്മീരിലെ മെഡിക്കൽ എൻജിനീയറിങ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലഡാക്കിൽ നിന്നുള്ള വിദ്യാർഥികൾക്കായി നാലു ശതമാനം സംവരണം ഏർപ്പെടുത്തണമെന്ന് കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉപദേശക സമിതി ശുപാർശ ചെയ്തിരുന്നു

ഉപഭോക്താക്കൾക്ക് ഇൻസെന്റീവ് ഉൾപ്പെടെയുള്ള ഇളവുകൾ ലഭ്യമാക്കുമെന്ന് റെയിൽവെ മന്ത്രാലയം അറിയിച്ചു കോവിഡ് പ്രതിസന്ധിയ്ക്കിടയിലും കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ അധികം ചരക്കു നീക്കം ഇത്തവണ നടന്നതായും മന്ത്രാലയം അറിയിച്ചു

ഉധംപൂർ ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയിൽ നടത്തിയ ഭൂമി കയ്യേറ്റവുമായും അനധികൃത നിർമാണ പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെട്ടാണ് പരിശോധന നടന്നത്

മറ്റെല്ലാ ജില്ലകളിലും നാളെ യെല്ലോ അലെർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്